മിക്ക്ച്ച് സ്നെവനം പരിഗണിച്ച് ഒരു സൈനിക കേന്ദ്രത്തിന് നൽകൂന്ന് പ്രമോന്നത ബഹുമതിയാണ് കളർ പുരസ്കാരം

ഗവൺമെന്റിന്റെ ധൂർത്തും നികുതി പിരിക്കുന്നതിലെ കെടുകാര്യസ്ഥതയും സാമ്പത്തിക പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാക്കിയതായും ശ്രീ വി

എന്നാൽ സംസ്ഥാനത്ത് സാമ്പത്തിക ഞെരുക്കമുണ്ടെന്നും പ്രതിസന്ധിയില്ലെന്നും മറ്റ് മാസങ്ങളേക്കാൾ ഈ മാസം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടി വന്നത് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ട നികുതി കുടിശ്ശിക ലഭിക്കാതെ വന്നതിനാലാണെന്നും ധനമുന്ത്രി തോമസ് ഐസക് മറുപടി നൽകി

അഞ്ചു സർവ്വീസുകൾ മാത്രമാണ് റദ്ദാക്കിയത്

രാവിലെയും വൈകിട്ടും കൂടുന്നത് പരിഗണിച്ച് ചെക്ക് ഇൻ തിരക്ക് സമയവും വർദ്ധിപ്പിച്ചിട്ടുണ്ട്

എസ് ഐ